എ ഗവൺമെന്റ് മുന്നോട്ടു പോകുമ്പോൾ അന്വേഷണ ഏജൻസികളെ ഭീഷണ്ണപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നതായി

രാജ്യത്ത് നാല് അന്താരാഷ്ട്ര വിമാനത്താവളമുള്ള സംസ്ഥാനമായി കേരളം കണ്ണൂർ വിമാനത്താവളം നാടിന് സമർപ്പിച്ചു

ലോകകപ്പ് ഹോക്കിയിൽ മലേഷ്യയെ മൂന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് തകർത്ത് ജർമ്മനി ക്വാർട്ടർ ഫൈനലിൽ

ജെ

ജെ

ശ്രീമതി സോണിയ ഗാന്ധിയുടെ മരുമകൻ ഗോപക് വാദ്രയുടെ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ നടത്തിയ റെയ്ഡുകൾ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം

ഷാനവാസ് ഹൂസൈൻ ആരോപിച്ചു

ഒരു വർഷമായി തുടരുന്ന വിചാരണയ്ക്കുശേഷം നാളെ ജഡ്ജി എമ്മ ആർബത്നോട്ട് വിധി പ്രസ്താവിക്കുകയാണെങ്കിൽ കേസിൽ അത് വഴിത്തിരിവായിരിക്കും

അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ക്കാട്ടുമുൻപുള്ള അവസാന സമ്പൂർണ്ണ പാർലമെന്റ് സമ്മേളനമീഴണിത് ഇരു സഭകളുടേയും സുഗമമായ നടത്തിപ്പിന് രാഷ്ട്രീയ പാർട്ടികളുടെ പൂർണ്ണ സഹകരണം ഉറപ്പാക്കുന്നതിനായി ഗവൺമെന്റ് നാളെ സർവ്വകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് രാജ്യസഭാ അധ്യക്ഷൻ എം വെങ്കയ്യനായിഡുവും നാളെ സർവ്വകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഗവൺമെന്റിനെ പാർലമെന്റിൽ പ്രതിരോധിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ മെനയാൻ പ്രതിപക്ഷ പാർട്ടികളും നാളെ പ്രത്യേകം യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പൂർണ്ണ സഹകരണം ഉറപ്പാക്കുന്നതിനായി ലോക്സഭാ സ്പീക്കർ സുമിത്രാ മഹാജൻ അവരുമായി മറ്റെന്നാൾ കൂടിക്കാഴ്ച നടത്തും

എ അധ്യക്ഷ സോണിയാ ഗാന്ധിയുടെ ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർക്ക് ആശംസകൾ നേർന്നു ശ്രീമതി സോണിയാഗാന്ധിക്ക് ആയുരാരോഗ്യ സൌഖ്യങ്ങൾ നേരുന്നതായി ശ്രീ നരേന്ദ്രമോദി ടിറ്റർ സന്ദേശത്തിൽ കുറിച്ചു

ബുധനാഴ്ചയാണ് വോട്ടെണ്ണൽ

ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ തെലങ്കാന മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണലാണ് ചൊവ്വാഴ്ച

മഹാറാണ പ്രതാപ് വിദ്യാഭ്യാസ കൌൺസിൽ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിൽ നാളെ അദ്ദേഹം പങ്കെടുക്കും ദ് ശ്ലീഗാരാഖ് നാഥ് നക്ഷേത്രം സന്ദർശിക്കുന്ന രാഷ്ട്രപതി ഉത്തർപ്പ്ദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഉപദേഷ്ട്ടാവ്വായിരുന്ന അന്തരിച്ച മഹന്ദ് ആവെയ്ദ്യ നാഥ്ജിക്ക് ആഭൂരാഞ്ജലികൾ അർപ്പിക്കും

വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര വ്യോമയാന മന്ത്രി സുരേഷ്പ്രഭുവും മുഖ്യമന്ത്രി പിണറായി വിജയനും സംയുക്തമായി നിർവ്വഹിച്ചു

അബുദാബിയിലേക്കാണ് കണ്ണൂരിൽ നിന്നുള്ള ആദ്യ സർവ്വീസ് ആരംഭിച്ചത് കണ്ണൂർ വിമാനത്താവളം സമയബന്ധിതമായി പൂർത്തീകരിച്ചതിൽ കേന്ദ്രമന്ത്രി സംസ്ഥാന ഗവൺമെന്റിനെ അഭിനന്ദിച്ചു കേരളത്തിന്റെ കയറ്റുമതി ടൂറിസം മേഖലകളിൽ വൻ കുതിച്ചു ചാട്ടത്തിന് വിമാനത്താവളം വഴിയൊരുക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു എരുമേലിയിൽ പുതിയ വിമാനത്താവളം നിർമ്മിക്കുന്നതിന് എല്ലാവിധ പിന്തുണയും നൽകണമെന്ന് ചടങ്ങിൽ സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചു

സാലറി ചാലഞ്ച് പോലെ ഇക്കാര്യത്തിലുള്ള ഗവൺമെന്റ് തീരുമാനം മണ്ടത്തരമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ഗവൺമെന്റിന്റേത് അധികാര ദുർവിനിയോഗമാണ്

എമ്മിന് വനിതാ മതിൽ സംഘടിപ്പിക്കണമെങ്കിൽ പാർട്ടി പണം ് ചെലവാക്കാണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

അടുത്ത കലോത്സവത്തിന് കാസർകോഡ് വേദിയാകും

ഭുവനേശ്വറിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ മൂന്നിനെതിരെ അഞ്ച് ഗോളുകൾ നേടിയാണ് ജർമ്മനി ക്വാർട്ടർ ഫൈനലിൽ കടന്നത്

കൊല്ലപ്പെട്ടവരെ തിരിച്ചറിയാൻ ശ്രമം തുടരുന്നതായി സംസ്ഥാന ഡി ജി

കനേഡിയൻ അംബാസിഡറെ വിളിച്ചു വരുത്തി ചൈനീസ് വിദേശകാര്യ സഹമന്ത്രി ലെ യു ചെങ് ആണ് മുന്നറിയിപ്പ് നല്കിയത് ഇറാനുമേലുള്ള അമേരിക്കൻ ഉപരോധം ലംഘിച്ചെന്നാരോപിച്ചാണ് മെങിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്

വോട്ടെടുപ്പ് വൈകിപ്പിക്കാൻ ഗവൂൺമെന്റ് ശ്രമിക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഷ്മീസ് തള്ളിക്കളഞ്ഞു